ത കോവിഡ് അനന്തര കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിന് ശാസ്ത്രീയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ ത കോവിഡ് ചികിത്സാ മേഖലയിലെ അനുഭവങ്ങളും ചികിത്സാ രീതികളും പങ്കുവെയ്ക്കുന്ന ദേശീയ പരിപാടി ഇന്ന് ഡൽഹി എയിംസിൽ ആരംഭിയ്ക്കും ത ഇന്ത്യ അമേരിക്ക ബിസിനസ് കൌൺസിൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തും

പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടി വൈകിട്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കോഴിക്കോട്ട് വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി കേരളത്തിൽ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളുടെയും പരിശോധനകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വോയ്സ് രുര സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു നിരവധി സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കണ്ണൂരിലും വയനാട്ടിലും കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി വിട്ടു നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു

ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒ പി സൌകര്യവും ടെലിമെഡിസിൻ ഇന്റർനെറ്റ് സൌകര്യങ്ങളും ഉണ്ടായിരിക്കും

പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്ന മുറയ്ക്ക് ചികിത്സാ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ പ്രകാരം തിരികെ വീട്ടിലെത്തിക്കും ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനം തുടരുകയാണ്

മറ്റ് ജില്ലകളിലും രോഗബാധിതരിൽ ഭൂരിഭാഗവും സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരാണ്

രോഗവ്യാപനം തടയാൻ പട്ടാമ്പിയിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ രണ്ടാഴ്ച തുടരും ഇന്ന് പാലക്കാട് വലിയങ്ങാടിയിലെ മൽസ്യ മാർക്കറ്റിലെ ജീവനക്കാരിലും ആന്റിജൻ പരിശോധന നടത്തും രുദ കൊല്ലം പൂതക്കുളത്ത് തിങ്കളാഴ്ച മരിച്ചയാൾക്ക് പ്രാഥമിക പരിശോധനയിൽ കോവിഡ് കണ്ടെത്തി വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

കണ്ണൂർ ജില്ലയിൽ ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പൊലീസിനെ സഹായിക്കുന്നതിന് വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ഷോപ്പിംഗ് മാളുകളും വ്യാപാര സ്ഥാപനങ്ങളും വൈകിട്ട് അഞ്ചിന് അടയ്ക്കണമെന്ന് കലക്ടർ ഉത്തരവിട്ടു വഴിയോര തട്ടുകടകളും തുറക്കാൻ പാടില്ല

ഞായറാഴ്ചകളിലെ അനാവശ്യ യാത്രകൾ പൂർണ്ണമായി നിരോധിച്ചതായും ഉത്തരവിൽ പറയുന്നു രുമ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ ജീവനക്കാർക്കും കൌൺസിലർമാർക്കുമായി ഇന്നലെ നടത്തിയ കോവിഡ് ആന്റിജൻ പരിശോധനയിൽ എല്ലാവരുടെയും ഫലം നെഗറ്റീവായി എന്നാൽ പൊറ്റമ്മൽ വാർഡിൽ കോവിഡ് സമ്പർക്ക പട്ടികയിലെ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രുമ തൊടുപുഴയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിൽ ഇന്നുമുതൽ രോഗികളെ പ്രവേശിപ്പിച്ച് തുടങ്ങും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് മൂന്നിടങ്ങളിൽക്കൂടി ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അറിയിച്ചു രേര തീരദേശ മേഖലകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചു

കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രെര കോവിഡ് അനന്തര കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ശാസ്ത്രീയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ

ഭിന്നശേഷിക്കാരിൽ പ്രത്യേക കരുതൽ ആവശ്യമായവർക്ക് വീടുകളിലെത്തി സൌജന്യ ചികിത്സ നൽകുന്ന സ്പീഹോ ഹോം കെയർ പദ്ധതി കോഴിക്കോട്ട് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോക്ഡൌൺ കാലത്ത് വീടുകളിൽ കഴിയേണ്ടി വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ദൈനംദിന ജീവിതം സുഗമമാക്കാൻ നിരന്തര പരിശീലനം ആവശ്യമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിതി ആയോഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ മികച്ച ചികിത്സാ രീതികൾ പങ്കുവെയ്ക്കാൻ ഡോക്ടർമാർക്ക് ഇത് അവസരം ഒരുക്കുമെന്ന് നിതി ആയോഗ് അംഗം ഡോ

കെ പോൾ അറിയിച്ചു

മെച്ചപ്പെട്ട ഭാവിയുടെ നിർമ്മാണം എന്ന വിഷയമാണ് ഉച്ചകോടി ചർച്ച ചെയ്യുന്നത് രുമ സംസ്ഥാനത്തെ ഭൂമിയും വീടുമില്ലാത്ത ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു രുമ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം

വെങ്കയ്യ നായിഡു കോഴിക്കോട്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എം

മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ജയറാം രമേഷ് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കമൽഹാസൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും

രാജസ്ഥാനിൽ നിന്നാണ് കെ

പാർലമെന്റ് ചേരാത്ത സാഹചര്യത്തിൽ രാജ്യസഭാ ചേംബറിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് ചടങ്ങ്

പിയുടെ പഠിച്ചുയരാൻ കൂടെയുണ്ട് പദ്ധതിയുടെ വയനാട് ജില്ലാതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു

കാപ്പാട് ഇന്നലെ ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണിത്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം